പദ്ധതികൾ അവലോകനം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ന് മന്ത്രിസഭായോഗം ചേരും

ജമ്മു കാശ്മീരിൽ അന്താരാഷ്ട്ര അതിർത്തിയിൽ ന് ഉണ്ടായ വെടിവയ്പിൽ ഒരു അസിസ്റ്റന്റ് കമാൻഡന്റ് ഉൾപ്പെടെ നാല് ബി എസ് എഫ് സേനാംഗങ്ങൾക്ക് വീരമൃത്യു

അതീവജാഗ്രതാ നിർദ്ദേശം

എ ഗവൺമെന്റിന്റെ സുപ്രധാന ജനക്ഷേമ പദ്ധതികൾ യോഗത്തിൽ ശ്രീ

പാർലമെന്റ് മന്ദിരത്തിൽ നടക്കുന്ന നിർണായക യോഗത്തിൽ പങ്കെടുക്കാൻ എല്ലാ കേന്ദ്രമന്ത്രിമാരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് കർഷകരുടെ ബുദ്ധിമുട്ടുകളും വിവിധ സംരംഭങ്ങളിലൂടെ കർഷകർക്ക് ആശ്വാസമെത്തിക്കാനുള്ള ഗവൺമെന്റിന്റെ ശ്രമങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്യും

പ്രധാന നദികളായ നംബുൽ ഇറിൽ ഇംഫാൽ എന്നിവ കരകവിഞ്ഞൊഴുകുകയാണ് ഇതേ തുടർന്ന് കിഴക്ക് പടിഞ്ഞാറ് ഇംഫാൽ ബിഷ്നപൂർ തൌബാൽ ജില്ലകളിലെ ജനവാസകേന്ദ്രങ്ങളും ഗവൺമെന്റ് ഓഫീസുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഏതു നിമിഷവും ഉണ്ടായേക്കാമെന്നാണ് ദുരന്ത നിവാർണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വരും ദിവസങ്ങളിൽ സ്ട്രസ്മാനത്ത് പലയിടങ്ങളിലും അതിശക്തമായ മഴയ്ക്കും സാധൃത്യുള്ള്തായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു

പലിശ സബ്സിഡിയ്ക്ക് അർഹമായ ഭവനങ്ങളുടെ കാർപറ്റ് ഏരിയ പരിധിയിലാണ് ഭവന നഗരകാര്യമന്ത്രാലയം മാറ്റങ്ങൾ വരുത്തിയത്

മാനദണ്ഡത്തിൽ വന്ന ഈ മാറ്റം പ്രധാൻമന്ത്രി ആവാസ് യോജനക്കു കീഴിൽ കൂടുതൽ ഗുണഭോക്താക്കളെ കൊണ്ടുവരാൻ സഹായകമാവും

എസ് എഫ് ജവാൻമാർക്ക് വീരമൃത്യു

സൈനികർക്ക് യാതൊരു പ്രകോപനവുമില്ലാതെയാണ് സെക്ടറിലെ ചാംലിയാലിലെയും നൃദ്രൂായ്യൺപൂരിലെയും ബിഎസ്എഫ് പോസ്റ്റുകൾക്ക് നേരെ പ്രാക്രിസ്ഥാൻ സേന വെടിയുതിർത്തതെന്ന് ബിഎസ്എഫ് വൃത്തങ്ങൾ ആകാശവാണിയോട് പറഞ്ഞു ബി എസ് എഫ് തിരിച്ചടിച്ചതിനെ തുടർന്ന് പുലർച്ചെ രണ്ട് മണിവരെ വെടിവയ്പ് തുടർന്നു

ആർ സി ടി സി ഹോട്ടൽ ശൃംഖലയ്ക്കുവേണ്ടി തട്ടിപ്പുനടത്തിയ കേസിലാണ് സാമ്പത്തിക തട്ടിപ്പ് തടയൽ നിയമപ്രകാരമുള്ള നടപടി

എൻഫോഴ്സ്മെന്റിന്റെ ഡൽഹി സോണൽ ഓഫീസ് ഒന്നിലെ അസിസ്റ്റന്റ് ഡയറക്ടറുടെ പേരിൽ ഏറ്റെടുക്കൽ നോട്ടീസും ഈ ഭൂമിയിൽ സ്ഥാപിച്ചു പട്നയ്ക്കടുത്ത് ദാനാപൂരിലെ മൂന്നേക്കർ സ്ഥലമാണ് കണ്ടുകെട്ടിയത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ലാലു പ്രസാദിനെയും കുടുംബാംഗങ്ങളെയും പ്രതിചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്

മൈൻപൂരി പട്ടണത്തിനു സമീപമുള്ള റോഡ് ഡിവൈഡറിൽ ഇടിച്ച് മറിയുകയായിരുന്നുവെന്ന് ജില്ലാ മജിസ്ട്രേറ്റ് ബസ് ആകാശവാണിയോട് പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബങ്ങളെ അനുശോചനം അറിയിച്ചു

അപകടത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തുകയും പരിക്കേറ്റവർക്ക് ആവശ്യമായ ചികിത്സാസാഹയം നൽകാൻ ഉദ്ദേർഗ്സ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്

വിശദാംശങ്ങളുമായി കരോൾ അബ്രഹാം

നിർമാണ ഖനന മേഖലകളിലെ മികച്ച വളർച്ചാനിരക്ക് വൃവസായ മേഖലയുടെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയതായാണ് വിലയിരുത്തൽ

നാലാം കേന്ദ്രത്തിൽ വാർഷികത്തോടനുബന്ധിച്ച് ആകാശൃപ്പാണിയുടെ വാർത്താ വിഭാഗം പ്രക്ഷേപണം ചെയ്തുവരുന്ന ച്ചൂർ സാൽ മോദി സർക്കാർ എന്ന പരമ്പരയിൽ ഇന്ന് കേന്ദ്ര ഗ്ഗൌത്രവർഗ്ഗകാര്യ മന്ത്രി ജൂവൽ ഒറാം പങ്കെടുക്കുന്ന അഭിമുഖ ്ര സംഭാഷണം കേൾക്കാം

ഗോൾഡ് ചാനലിൽ കേൾക്കാം

ജനങ്ങൾ അവരവർക്ക് ഇഷ്ടമുള്ള വ്യായാമ മുറകളിൽ ഏർപ്പെടണമെന്ന് ടിറ്റർ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു ഇതുവഴി ഒരു അനുകൂല അന്തരീക്ഷം ഓരോരുത്തരിലും ഉണ്ടാകുമെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി ദിവസവും രാവിലെ അദ്ദേഹം പരിശീലിക്കുന്ന വ്യായാമ മുറകളുടെ ദൃശ്യശകലവും സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട്

നരേന്ദ്രമോദി ആപ്പ് മൈഗവ് ഓപ്പൺ ഫോറം എന്നീ ആപ്പുകളിൽ ജനങ്ങൾക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും അയയ്ക്കാമെന്ന് ശ്രീ

ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് മേധാവി കെ

അടുത്തിടെ ബിഹാറിലും പശ്ചിമബംഗാളിലും നിരവധി ജീവനുകൾ കവർന്ന ചുഴലിക്കാറ്റും പേമാരിയും മുൻകൂട്ടി പ്രവചിക്കാൻ സംവിധാനത്തിന് കഴിയുമെന്ന് അദ്ദേഹം മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു

കരാർ മുന്നോട്ടു ഹെലികോപ്ടറുകളെ കൂടാതെ രാത്രികാല നിരീക്ഷണ സംവിധാനങ്ങളും ജി പി എസ് ഉപകരണങ്ങളും ആകാശവേധ മിസൈലുകളും കരാറിന്റെ ഭാഗമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു

ശക്തമായ മഴയിൽ ഇടുക്കി വയനാട് ജില്ലകളിലെ ചില മേഖലകൾ ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ്

അറബിക്കടലിൽ കേരളതീരത്തിന് സമാനമായി ന്യൂനമർദ്ദപാത്തി നിലകൊള്ളുന്നതാണ് മഴ ശക്തമാകാൻ കാരണമാണെന്ന് അറിയിപ്പിൽ പറയുന്നു

പരസ്പരമുള്ള പഴിചാർൽ ഒഴിവാക്കാൻ ശ്രമിച്ചാൽ മേഖലയിൽ സമാധാനം സാധ്യമാകുമെന്നും ശ്രീ ഉൻ പ്രത്യാശ പ്രകടിപ്പിച്ചതായി ഉത്തര കൊറിയൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക മാധ്യമമായ കെ സി എൻ എ അറിയിച്ചു